പാലാ നിയമസഭാ ഉപയെരഞ്ഞ ടുപ്പിൽ മണ്ഡലത്തെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം

വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ സത്താർ അന്തരി ച്ചു കബറടക്കം വൈകീട്ട് കടുങ്ങല്ലൂരിൽ കാർഷിക മേഖല കാലാനുസൃതമായി പുതിയ വിപണി കണ്ടെ ത്തണമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ശ്രീ മരട് ഫ്ളാറ്റ് വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ച സർവ്വകക്ഷി യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും ഫ്ളാറ്റ് പൊളിക്കണമെന്ന സുപ്രീം കോടതി വിധിയിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ മൂന്ന രക്ക് ചേരുന്ന യോഗം ചർച്ച ചെയ്യും

ഫ്ളാറ്റുകൾ വാങ്ങിയവർക്ക് ബിൽഡർമാരുടെ നിയമലംഘനം അറിയില്ലായിരുന്നുവെന്ന് കത്തിൽ പറയുന്നു

ഫ്ളാറ്റുകളിലെ താമസക്കാരിൽ താൽക്കാലിക പുനരധിവാസം വേണ്ടവർ വൈകീട്ട് മൂന്നിന് മുമ്പ് നഗരസ്ഭയിൽ അപേക്ഷ നൽക ണമെന്ന് മരട് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു ഒഴിയേണ്ട സമയപരിധി അവസാനിച്ച ശേഷം ഫ്ളാറ്റുകളിൽ പതിച്ച നോട്ടീസിലാണ് നഗര സഭ ഇക്കാര്യം അറിയിച്ചത് നോട്ടീസ് നൽകാനെത്തിയ നഗരസഭാ സെക്രട്ടറിയെ ഫ്ളാറ്റുകളിലെ താമസക്കാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിന് കാരണമായി ഫ്ളാറ്റുകളിൽ നിന്ന് ഒരു കാരണവ ശാലും ഒഴിയില്ലെന്ന് ഉടമകൾ വൃക്തമാക്കി ഈ വർഷത്തെ പ്രളയ പ്രകൃതി ക്ഷോഭ നാശനഷ്ട്ടങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴ മലപ്പുറം ജില്ലകൾ സന്ദർശിക്കും ആലപ്പുഴയിൽ മൂന്നംഗ സംഘം രാവിലെ മന്ത്രി ജി സുധാകരന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും

അതിന് ശേഷം അമ്പലപ്പൂഴ വടക്ക് വില്ലേജിലെ കടലാക്രമണ പ്രദേശങ്ങളും തോട്ടപ്പള്ളി സ്പിൽവേ കടലാക്രമണം നേരിടുന്ന കാട്ടൂർ ഒറ്റമശ്ശേരി എന്നിവിടങ്ങളും സന്ദർശിക്കും മലയിടിച്ചിൽ ദുരന്തമുണ്ടായ മലപ്പുറം ജില്ലയിലെ കവളപ്പാറയ ടക്കം പ്രദേശങ്ങളിൽ കേന്ദ്ര സംഘ തലവൻ ശ്രീപ്രകാശിന്റെ നേതൃ ത്വത്തിൽ നാലംഗ സംഘം പര്യടനം നടത്തും

കൈപ്പിനി പാലം പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പാതാർ അമ്പുട്ടാൻപൊട്ടി മുണ്ടേരി എന്നിവിടങ്ങളിൽ ഉച്ചക്ക് മുമ്പ് സന്ദർശനം പൂർത്തിയാക്കും ഉച്ചകഴിഞ്ഞ് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എടവണ്ണ കീഴുപറമ്പ് അഴീക്കോട് എന്നിവിടങ്ങളിലും നഷ്ടം വിലയിരുത്തും

വെള്ളിയാഴ്ച്ച തിരുവനന്ത പുരത്ത് മുഖ്യമന്ത്രിയേയും മന്ത്രി ഇ ചന്ദ്രശേഖരനേയും കണ്ട് വിഷയം ചർച്ച ചെയ്യും ഇന്നലെ കൊച്ചിയിലെത്തിയ സംഘത്തിന് സംസ്ഥാന ദുരിതാ ശ്വാസ കമ്മീഷണർ ഡോ

അടുത്തടുത്ത വർഷങ്ങളി ലുണ്ടായ വെള്ളപ്പൊക്കത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെ ടുത്ത് സംസ്ഥാനത്തിന് പ്രത്യേക പ്രിഗണന നൽകണമെന്ന് നിവേദ നത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

തുക അനുവദിച്ചതിന്റെ ഉത്തരവ് ഈ മാസം ഒമ്പതിന് മന്ത്രി ഡോ

എന്നാൽ അവധി ദിനങ്ങളായിരുന്നതിനാൽ തുക നൽകാൻ കഴിഞ്ഞി രുന്നില്ല ഓണാവധി കഴിഞ്ഞ് ആദ്യ പ്രവൃത്തി ദിവസം തന്നെ ഗുണ ഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് തുക നൽകുകയായിരുന്നു

പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പര്യടനം തുടരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോം ഇന്നു രാവിലെ കരൂർ പഞ്ചായത്തിലെ അന്തീനാടു നിന്ന് പരൃടനം ആരംഭിക്കും ഉച്ചകഴിഞ്ഞ് രാമപുരം പഞ്ചായത്തിൽ പര്യടനം നടത്തും

ഉച്ചകഴിഞ്ഞ് കരൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും എൻഡിഎ സ്ഥാനാർത്ഥി എൻ ഹരി മീനച്ചിൽ പഞ്ചായത്തിലെ മീനച്ചിലിൽ നിന്ന് പര്യടനം ആരംഭിക്കും പിന്നീട് കൊഴുവനാൽ എലിക്കുളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ മൂന്നുദിവസം പാലായിൽ ക്യാമ്പു ചെയ്ത് എൽഡിഎഫിന്റെ പ്രചരണം നയിക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ

ആന്റണി നാളെ യുഡിഎഫിന്റെ പ്രചരണത്തി നെത്തും കേന്ദ്ര മന്ത്രി വി മുരളീധരൻ എൻഡിഎയുടെ പ്രചരണത്തിനുമെത്തും പ്രളയബാധിത വില്ലേജുകളിലെ ബാങ്ക് വായ്പകൾക്കേർപ്പെടു ത്തിയ മൊറട്ടോറിയം ആനുകൂല്യം മുഴുവ്ൻ കർഷകരിലും എത്തി ക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി

കഴിഞ്ഞ വർഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും വായ്പ പുനക്രമീകരിക്കണമെന്ന കാര്യം സാധാരണക്കാരിലെത്തിക്കാൻ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കണം സാമ്പത്തിക സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വായ്പാ പുന ക്രമീകരണവും മൊറട്ടോറിയം ആനുകൂല്യവും കൽപ്പറ്റ ജില്ലാ സഹ കരണ ബാങ്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വയനാട് ജില്ലയിലെ മുഴുവൻ വില്ലേജുകളേയും പ്രളയബാധിതമായി പ്രഖ്യാ പിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ട് വരുന്ന തെരഞ്ഞെ ടുപ്പുകളിലും വിജയം അനായാസമാണെന്ന് കരുതാൻ പാടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

ദേശീയതലത്തിൽ കോൺഗ്രസ് സമരസംഘടനയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് കെ

ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന നീക്കം അപക ടകരമാണെന്നും ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യവെ മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു

ഗുജറാത്തി ലെത്തി മാതാവ് ഹീരാബെന്നിനെ കാണുന്ന് പ്രധാനമന്ത്രി അതിനു ശേഷം സർദാർ സരോവർ അണക്കെട്ടിലെ നമാമി ദേവീ നർമ്മദാ മഹോത്സവത്തിലും പങ്കെടുക്കും

ഞായറാഴ്ച്ച അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടക്കുന്ന ഹൌഡി മോദി പരിപാടിയിലെ പ്രസംഗത്തിൽ പരാമർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ആശയങ്ങൾ തേടി

പരിപാടിയിൽ അമേരിക്കൻ പ്രസിഡന്റ ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും അമേരിക്കയുടെ ചരിത്രത്തിലാ ധ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത പൊതു ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നത് വില്ലൻവേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ നടൻ സത്താർ അന്തരിച്ചു

കബറടക്കം വൈകീട്ട് കടുങ്ങല്ലൂർ ജുമാമസ്ജിദ് കബർസ്ഥാനിൽ നടത്തും

കൊച്ചി ധനുഷ്ക്കോടി ദേശീയ പാതയിൽ ബോഡിമെട്ടിനു സമീപം പുലിക്കുത്തു ഭാഗത്ത് ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് മൂന്ന് പേർ മരിച്ചു

പരിക്കേറ്റവർ മധുരാ മെഡി ക്കൽ കോളജിലും തേനി മെഡിക്കൽ കോളജിലും പ്രവേശിപ്പിച്ചു

കാർഷികമേഖല കാലാനുസൃതമായി പുതിയ വിപണി കണ്ടെ ത്തണമെന്ന് മന്ത്രി ഡോ

കാർഷിക വിളകളെ മൂലൃ വർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണനം ചെയ്താലെ കർഷകരുടെ പ്രതിശീർഷ വരുമാനം അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഇരട്ടിയാക്കാനാവു വയനാട് അമ്പലവയൽ പ്രാദേ ശിക ഗവേഷണ കേന്ദ്രത്തെ കാർഷിക കോളേജാക്കി ഉയർത്തുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഗുണഭോക്താക്കൾക്ക് അദ്ദേഹം താക്കോലുകൾ കൈമാറി

ലിറ്റ റിന് നാലുരൂപയാണ് വർദ്ധിക്കുന്നത് ക്ഷീര കർഷകരുടെ പ്രതി സന്ധി മറികടക്കാനാണ് ലിറ്ററിന് നാല് രൂപ കൂട്ടാൻ മിൽമ ഭരണ സമിതിയോഗം തീരുമാനിച്ചത്

ബാലനീതി നിയമത്തിൽ കേന്ദ്ര ചട്ടത്തിന്റെ മറപിടിച്ച് സംസ്ഥാ നത്തെ അനാഥാലയങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ഡോ

സാമൂഹ്യ നീതിയെ കുറിച്ച് അൽപമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വീണ്ടുവിചാരം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

മഹാശോഭയാത്രയും സാംസ്കാരിക സമ്മേളന ങ്ങളും നടക്കും

എസ്

സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ബിഎംഎസ് ന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ഇന്ന് തൊഴിലാളി ദിനമായി ആഘോഷിക്കും